മാർഗ്ഗരേഖ പുറപ്പെടുവിച്ചു

ഒന്നേ മുക്കാൽ ലക്ഷത്തോളം കന്നി വോട്ടർമാർ

ലയനത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി

എസ്

നേരിടും

കൂടുതൽ വിവരങ്ങളുമായി സുലൈമാൻ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കോവിഡ് വ്യാപനം തടയാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പ്രാദേശിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ് കൺഡൈയ്ൻമെന്റ് മേഖലകൾ കൃത്യമായി രേഖപ്പെടുത്തണം

കോവിഡ് നിയന്ത്രണ മാർഗ്ഗങ്ങൾ കൃത്യമായി പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ പോലീസും മുനിസിപ്പൽ അധികൃതരും ബാധ്യസ്ഥരാണ് പുതുക്കിയ മാർഗരേഖ കോവിഡ് ബാധിച്ച് മരണമടയുന്നയാളുടെ മൃതദേഹം കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് മാർഗനിർദേശങ്ങൾ പുതുക്കിയതായി മന്ത്രി കെ

പഠനപിന്തുണ കൂടുതൽ ശക്തമാക്കുക റിവിഷൻ ക്ലാസ്സുകൾക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുക തുടങ്ങിയവയാണ് ചുമതലകൾ

ഇലക്ഷൻ ഡ്യൂട്ടി തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഓഫീസുകൾ നാളെ തുറന്ന് പ്രവർത്തിക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പണിമുടക്ക് ദിവസം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരത്തിലിറങ്ങുന്ന ജീവനക്കാരുടെയും സർക്കാരിന്റെയും വാഹനങ്ങളിൽ ഇലക്ഷൻ ഡ്യൂട്ടി എന്ന ബോർഡോ സ്തിപ്പോ പതിപ്പിക്കണം

ഇതു സംബന്ധിച്ച ഹൈക്കോടതി ഉത്തരവ് കമ്മീഷൻ സംസ്ഥാന പോ ലീസ് മേധാവിക്കും ജില്ലാ കളക്ടർമാർക്കും കൈമാറി

അനുമതി വാങ്ങണം തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊതുയോഗം ജാഥ എന്നിവ സംഘടിപ്പിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നു മുൻകൂർ അനുമതി വാങ്ങണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു

ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയാണ് ഇക്കാര്യം വൃക്തമാക്കിയത്

ബി എസ് ബാങ്കുമായുള്ള ലയനത്തിന് കേന്ദ്ര മന്ത്രിസഭയുടെ അനുമതി ഇതു സംബന്ധിച്ച റിസർവ് ബാങ്കിന്റെ നിർദ്ദേശത്തിനാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത് നിക്ഷേപകരുടെയും പ്പു പൊതുജനത്തിന്റെയും താല്പര്യം മുൻനിർത്തിയാണ് തീരുമാന്ദ്രിമിന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ന്യൂഡൽഹിയിൽ പറഞ്ഞു്

പ്രിസൈഡിംഗ് ഓഫീസർ പൊതുജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റുകയെന്നതാണ് ജനപ്രതിനിധികൾക്കും ജനാധിപത്യ സ്ഥാപനങ്ങൾക്കും മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്

കൺട്രോൾ റൂം തിരഞ്ഞെടുപ്പും പുതുവർഷവും കണക്കിലെടുത്ത് കൊല്ലം ജില്ലയിൽ എക്സൈസ് പ്രത്യേക കൺട്രോൾ റൂം ആരംഭിച്ചു

നഗരസഭാ റിട്ടേണിങ്ങ് ഓഫീസർമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം